പാലക്കാട് ആലപ്പുഴ ജില്ലകളിൽ സന്ദർശനം ആരംഭിച്ചു മലപ്പുറം കണ്ണൂർ ജില്ലകളിലും സന്ദർശനം ഇന്ന്

തുക നൽകുന്നത് സംബ്രെസിച്ച് മന്ത്രി തോമസ് ഐസക് പെൻഷ്ടൻകാരുടെ സംഘടനയുമായി ഇന്ന് ചർച്ച നടത്തും ഒഡീഷയിലെ താൽച്ചറിൽ രാസവള ന് നിർമ്മാണശാലയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവ്വഹിച്ചു

മത്സരത്തിൽ ഇന്ത്യക്ക് ജയത്തോടെ തുടക്കം ഇന്ത്യ പാക് പോരാട്ടം നാളെ

കേരളത്തിന്റെ സജൻ പ്രകാശിന് വീണ്ടും റെക്കോർഡോടെ സ്വർണം

ജില്ലാ കലക്ടറുമായി നെല്ലി്യാമ്പതിയാണ് സംഘം ആദ്യം സന്ദർശിച്ചത് ശംഖുവാരത്തോട് കുമാരസ്വാമി സുന്ദരംകോളനി കരടിയോട് കോട്ടോപ്പാടം മണ്ണാർക്കാട് എന്നിവിടങ്ങളിലെ സന്ദർശനശേഷം സംഘം മലപ്പുറത്തേയ്ക്ക് തിരിക്കും

കൈനകരി കാവാലം പ്രദേശ്രങ്ങളാണ് സംഘം ഇപ്പോൾ സന്ദർശിക്കുന്നത്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ

ശശിധരൻ

ഏലൂർ പി

കളക്ടർ യു

ജൂണിലുണ്ടായ കരിഞ്ചോലമലയിലെ ഉരുൾപൊട്ടലും കണ്ണപ്പൻകുണ്ടിലെയും ചുരത്തിലെയും കോർപറേഷനിലെയും മലയോരമേഖലയിലെയും പ്രളയക്കെടുതികളുടെ ചിത്രങ്ങളും വീഡിയോയും സംഘത്തിന് മുമ്പിൽ വിശദീകരിച്ചു

ഉച്ചയ്ക്ക് ജില്ലയിലെത്തുന്ന കേന്ദ്ര ഉദ്യോഗസ്ഥർക്കുമുന്നിൽ പ്രളയക്കെടുതികളുടെ വിശദാംശങ്ങൾ കളക്ടർ ഡോ

വിവിധ വകുപ്പുകളുടെ ജില്ലാ മേധാവികളും യോഗത്തിൽ പ്പെടുക്കും ജില്ലയിൽ പ്രളയം ബാധിച്ച മേഖലകളിൽ കേന്ദ്ര സംഘം സന്ദർശിക്കും

കൂടുതൽ വിവരങ്ങളുമായി പ്രിയ ഒരുമാസത്തെ പെൻഷൻ തുക ഒറ്റത്തവണയായോ അല്ലെങ്കിൽ ഗഡുക്കളായോ നൽകണമെന്ന് പെൻഷൻക്കാരുടെ സംഘടനകളോട് മന്ത്രി ആവശ്യപ്പെടുമെന്നാണ് സൂചന അതേസമയം ഒരുമാസത്തെ പെൻഷൻ നൽക്കാൻ കഴിയുന്നവർ നൽകട്ടെ എന്നാണ് സംഘടനകുളുടെ നിലപാട്

ശ്രും ദിവസത്തെ പെൻഷൻ നിരവധി പേർ ദുരിതാശാസനിധിയിലേക്ക് നൽകിയിരുന്നു ഇതിന്റെ നടപടികൾ ഇപ്പോഴും തുടരുകയാണ്

സംസ്ഥാനത്തെ അമ്പത് ശതമാനം പെൻഷൻക്കാരും പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ്

ന്യൂസ്ഡെസ്ക് ആകാശവാണി

മൂന്നു ദിവസത്തെ ചോദൃം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് അതിനിടെ അർദ്ധരാത്രി അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബിഷപ്പിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു പരിശോധനയ്ക്ക് ശേഷം രാവിലെ ആശുപത്രി വിട്ട ബിഷപ്പിനെ പോലീസ് ക്ലബിലേക്ക് കൊണ്ടുപോയി

ജയരാജൻ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇക്കാര്യ്ത്തിൽ ഗവൺമെന്റ് എപ്പോഴും ഇരകൾക്കൊപ്പമാണെന്നും സി

ഐ

ട്ടടടടട പ്രധാനമന്ത്രി ഒഡീഷയിലെ താൽച്ചറിൽ രാസവള നിർമ്മാണശാലയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവ്വഹിച്ചു സംസ്ഥാനത്തെ ഏകദിന സന്ദർശനത്തിനിടെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും തുടർന്ന് ത്ധർസുഗുഡയിൽ വിമാനത്താവളം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഉഡാൻ പദ്ധതിക്കു കീഴിലാണ് വിമാനത്തവളം നിർമ്മിച്ചിരിക്കുന്നത് ജർജൻബാഹൽ കൽക്കരിപ്പാടം ഝർസുഗുഡ ബാരാപലി സർദേഗ റെയിൽപാത എന്നിവയും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും

മോശം കാലാവസ്ഥയെ തുടർന്ന് അഭിലാഷ് ടോമി സഞ്ചരിച്ച വഞ്ചിയുടെ പായ കെട്ടിയിരുന്ന തൂൺ ഒടിഞ്ഞതാണ് അപകടമുണ്ടായതെന്നാണ് സൂചന സംഭവത്തിൽ അഭിലാഷിന് മുതുകിന് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് മത്സരത്തിൽ മൂന്നാം സ്ഥാനത്ത് മുന്നേറുന്നതിനിടെയാണ് അപ്രത്രീക്ഷിതമായി പായ് വഞ്ചിക്ക് തകരാർ സംഭവിച്ചത് താൻ സുരക്ഷിതനാണെന്നു സ്ന്ദേശം അഭിലാഷിൽ നിന്ന് കൺട്രോൾ റൂമിൽ ലഭിച്ചതായി റിപ്പോർട്ടുകൾ ജൂലൈ ഒന്നിന് ഫ്രാൻസിൽ ്നിന്നാണ് ഉണ്ട്

വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണിമുനിയറ

ദുബായിൽ നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശിനെ ഏഴ് വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ടോസ് നേടിയ ഇന്തൃ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഇന്ത്യൻ ബൌളിംഗിന് മുന്നിൽ ബംഗ്ലാദേശിന് അടിപതറുകയായിരുന്നു

സൂപ്പർഫോറിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ത്യ നാളെ പാക്കിസ്ഥാനെ നേരിടും

ഡി

റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാന ഗവൺമെന്റിന്റെ വായ്പാ അപേക്ഷയിൽ അന്തിമ ലോകബാങ്കിന്റെയും ഏഷ്യൻ തീരുമാനം

രാജൃത്ത് ആദ്യമായാണ് ഗവൺമന്റ് ഇത്തരം വിവാഹപൂർവ്വ കൌൺസലിംഗ് തുടങ്ങുന്നത്

റ്റി നഴ്സിംഗ് സ്കൂളിൽ മന്ത്രി കെ

ജലീൽ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു